കേരളത്തിലെത്തുമ്പോൾ വീണ്ടും ശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമായി മാറും

ത അഞ്ചു ജില്ലകളിൽ പൊതു മേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഓഫീസുകൾക്ക് ഇന്ന് പൊതുഅവധി

വാർത്തകൾ വിശദമായി ബുറേവി ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് അതി തീവ്ര ന്യൂനമർദ്ദമായി മാറിയതായി അറിയിച്ചു

അടുത്ത ആറു മണിക്കൂറിനുള്ളിൽ രാമനാഥപുരത്തിനും തൂത്തുക്കുടി ജില്ലയ്ക്കുമിടയിൽ ഇത് തീരം തൊടുമെന്നാണ് കണക്കാക്കുന്നത്

തിരുവനന്തപുരം ജില്ലയിലെ വടക്കു കിഴക്കൻ മേഖലയിലൂടെ ന്യൂനമർദ്ദം അറബിക്കടലിൽ എത്തും സംസ്ഥാനത്ത് ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെ പത്തു ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ കേരള തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്നത് പൂർണമായും നിരോധിച്ചിട്ടുണ്ട് ദ്ദേ ബുറേവി ചുഴലിക്കാറ്റിനെ നേരിടാൻ കേരളം സജ്ജമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

വ്യോമസേനയോട് ഹെലികോപ്ടറും ഫിക്സഡ് വിങ് എയർക്രാഫ്റ്റും തയ്യാറാക്കി നിർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്

ആർമിയോടും അർദ്ധ സൈനിക വിഭാഗങ്ങളോടും സജ്ജരായി ഇരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് രംഭ ബുറേവി ചുഴലിക്കാറ്റിന്റെ സഞ്ചാരപഥത്തിൽപെട്ട അഞ്ചു ജില്ലകളിൽ ഇന്ന് പൊതു മേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഓഫീസുകൾക്ക് ഗവൺമെന്റ് പൊതു അവധി പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലാണ് പൊതു അവധി

സി ഇന്നത്തെ എല്ലാ അഭിമുഖങ്ങളും മാറ്റിയിട്ടുണ്ട്

എസ് ആർ ടി

ഗവൺമെന്റ് പ്രഖ്യാപിച്ച കെ

ദുരന്തനിവാരണ പ്രവർത്തനക്കൾക്കും അവശ്യ സർവ്വീസ് നടത്തിപ്പിനുമായി മാത്രമാകും സർവ്വീസ് നടത്തുക എന്നും അദ്ദേഹം പറഞ്ഞു ദേഴ ബുറേവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ മുന്നറിയിപ്പ് നൽകിയ ജില്ലകളിൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വിവിധ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി

കോട്ടയത്ത് ഡിസംബർ അഞ്ച് വരെ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തി

പത്തനംതിട്ട ജില്ലയിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ ബോർഡുകൾ ഹോർഡിംഗുകൾ എന്നിവ നീക്കം ചെയ്യാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി

മുതിരപ്പുഴയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു

വാക്സിൻ പുറത്തിറക്കുന്നതും കോവിഡാനന്തര ഇന്ത്യയിൽ സ്വീകരിക്കേണ്ട നടപടികളും യോഗം ചർച്ച ചെയ്യും

ഹർഷ് വർധൻ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും അതിനിടെ നൂറ് രാജ്യങ്ങളിലെ അംബാസിഡർമാർ ഇന്ന് പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കും

രും കോവിഡ് കാലത്തെ അശ്രദ്ധയും ജാഗ്രതക്കുറവും ഏറെ ആപൽക്കരമെന്ന് നടൻ ലാൽ പറഞ്ഞു കരുതലിനേക്കാൾ മികച്ച പ്രതിരോധം മറ്റൊന്നില്ലെന്നും ആ ഉത്തരവാദിത്തം ഓരോരുത്തരും സ്വയം ഏറ്റെടുക്കണമെന്നും ലാൽ ആകാശവാണിയോട് പറഞ്ഞു

ദേഴ കോഴിക്കോട് ജില്ലയിലെ ബീച്ചുകളിലും പൊതു പാർക്കുകളിലും ഇന്നു മുതൽ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകാൻ ജില്ലാ കലക്ടർ സാംബശിവ റാവു അനുമതി നൽകി രും സമരം ചെയ്യുന്ന കർഷകരുമായി കേന്ദ്രം നാളെ വീണ്ടും ചർച്ച നടത്തും ഇന്നലെ ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ മിനിമം താങ്ങുവില തുടരുമെന്നും അതേക്കുറിച്ച് കർഷകർ ഭയപ്പെടേണ്ടതില്ലെന്നും കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ഉറപ്പുനൽകി

ഭാസ്കരൻ നിർദ്ദേശം നൽകി പ്രശ്നബാധിത ബൂത്തുകളെ സംബന്ധിച്ച് സംസ്ഥാന പൊലീസ് മേധാവി കമ്മീഷന് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി

വെബ്കാസ്റ്റിംഗ് നടത്തുവാൻ നിശ്ചയിച്ചിട്ടില്ലാത്ത പ്രശ്നബാധിത ബൂത്തുകളിൽ വീഡിയോഗ്രാഫി നടത്തും

ഗോവയിൽ നടന്ന മത്സരത്തിൽ ഒരു ഗോളിനാണ് ഒഡീഷയെ പരാജയപ്പെടുത്തിയത്